ശബരിമല തിരുവാഭരണ ഘോഷയാത്രക്ക് സായു ധ പൊലീസ് സുരക്ഷ ഒരുക്കുമെന്ന് ഗവ ഹൈക്കോടതിയെ അറിയിച്ചു എസ്എൻസി ലാവ്ലിൻ കേസിന്റെ പരിഗണന സുപ്രീം കോടതി മാറ്റി ഏഷ്യൻകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു എ ഇ യെ നേരിടും നാലാമത് കേരള ലിറ്ററച്ചർ ഫെസ്റ്റിന് ഇന്ന് വൈകിട്ട് കോഴി ക്കോട്ട് തുടക്കമാവും കേരളത്തിന്റെ പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കാൻ ചരക്കു സേവന നികുതിയിൽ സെസ് ചുമത്തുന്ന കാര്യത്തിൽ ജിഎസ്ടി കൌൺസിൽ ഇന്ന് അന്തിമ തീരുമാന മെടുത്തേക്കും ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രി ഡോ

രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി കേന്ദ്ര ഗവ ജിഎസ്ടി കൌൺസിലിനെ ഉപയോഗിക്കുകയാണെന്ന് ഡോ

ലോട്ടറി നികുതി ഏകീകരണത്തിലൂടെ ലോട്ടറിയുടെ ഘടന തന്നെ അട്ടിമറിക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാ ണ് തെരഞ്ഞെടുപ്പ് അജണ്ടയോടെ കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര ഗവ നീങ്ങുകയാണെന്നും തോമസ് ഐസക് ആരോപിച്ചു

ഇതിനു മുൻപ് കേസിലെ എല്ലാ രേഖകളും സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് രൂഞ്ജൻ ഗൊഗോയ് നിർദ്ദേശിച്ചു ഭരണഘടനാ ബെഞ്ചിലെ അർഗമായിരുന്ന ജസ്റ്റിസ് യു യു ലളിത് പിന്മാറിയതിനെ തുടർന്നാണ് കേസ് മാറ്റിയത്

രാജ്യരക്ഷാമന്ത്രി നിർമലാ സീതാരാമനെതിരെ നടത്തിയ പരാ മർശത്തിന്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിക്ക് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു റഫേൽ വിഷയ ത്തിൽ സ്ംസാരിക്കവെ പ്രധാനമന്ത്രി ഒരു സ്ത്രീയെ സംരക്ഷി ക്കാൻ ശ്രമിക്കുകയാണെന്ന് രാഹുൽഗാന്ധി പറഞ്ഞതായി മാധ്യ മങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വനി താകമ്മീഷൻ സ്വമേധയാ നോട്ടീസയച്ചത് ആണത്തോടെ ആരോപണത്തിന് മറുപടി പറയാനും രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടതായി നോട്ടീസിൽ പറയുന്നു ഈ രണ്ട് പരാമർശങ്ങളും സ്ത്രീത്ത്തെ അപമാനിക്കുന്നതും സ്ത്രീവി ദ്ദേഷപരവും അധാർമികവുമാണെന്ന് നോട്ടീസിൽ ആരോപിക്കു ന്നു പരാമർശത്തെ നിശിതമായി അപലപിക്കുന്നുവെന്ന് കമ്മീ ഷൻ അധ്യക്ഷ രേഖാശർമ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഗവൺമെന്റിന്റെ ആയിരം ദിനങ്ങൾ വിപുലമായി ആഘോ ഷിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാനത്തെ ഗവ

ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അക്ര മസംഭവങ്ങളെക്കുറിച്ചും ക്രമസമാധാനനിലയെക്കുറിച്ചും ഗവർണർ ആവശ്യപ്പെട്ട അടിയന്തര റിപ്പോർട്ട് ഗവൺമെന്റ് ഇന്ന് കൈമാറി യേക്കും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗവർണ്ണർ റിപ്പോർട്ട് ആവശ്യ പ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് ഗവർണറോട്ട് കേരളത്തിലെ ക്രമസമാ ധാന സാഹചര്യം അറിയിക്കാൻ ആവശ്യക്പെട്ടതിനെത്തുടർന്ന് ചെന്നൈയിലുണ്ടായിരുന്ന ഗവർണർ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു സംസ്ഥാന വ്യാപകമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി സമഗ്രമായ റിപ്പോർട്ട് നൽകുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിരുന്നു ശബരിമല മകരവിളക്കിന് മുന്നോടിയായി പന്തളത്തു നിന്ന് പുറ പ്പെടുന്ന തിരുവാഭ്രണ് ഘോഷയാത്രക്ക് സായുധ പൊലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കുമെന്ന് ഗവ

ഘോഷ്യാത്രക്ക് പൊലീസ് സംരക്ഷണം തേടി പന്തളം രാജ കൊട്ടാരം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഗവ

നില്വിലെ അവസ്ഥയിൽ സന്നിധാനത്തേക്ക് തിരുവാഭ രണം കൊണ്ടുപോകുമ്പോഴും തിരിച്ചെത്തിക്കുമ്പോഴും സുരക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം

ന്റെ മറുപടിയെ തുടർന്ന് ഹർജി കോടതി തീർപ്പാക്കി ശബരിമല കാനന പാതയിൽ തീർത്ഥാടകരുടെ രാത്രികാലയാത്ര വനംവകുപ്പ് നിരോധിച്ചു കരിമലയ്ക്ക് സമീപം കാട്ടാന ആക്രമ ണത്തിൽ തീർത്ഥാടകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപ ടി സന്ധ്യയ്ക്ക് മുൻപ് സന്നിധാനത്തോ പമ്പയിലോ എത്താൻ കഴിയാത്തവർ കരിമല പുല്ലുമേട് വഴി യാത്ര ചെയ്യരുതെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചു

ശബരിമലയിലെ ആചാര ലംഘനത്തിനും പോലീസ് അതിക്ര മത്തിനുമെതിരെ ശബരിമല കർമസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ് കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധസംഗമം സംഘടിപ്പിക്കും വൈകിട്ട് അഞ്ച് മുതൽ എട്ടുവരെ നടക്കുന്ന പ്രതി ഷേധ സംഗമത്തിന് സന്യാസിവര്യന്മാർ ഹിന്ദുസ്ടംഘടനാ നേതാ ക്കൾ എന്നിവർ നേതൃത്വം നൽകുമെന്ന് കർമ്സ്മിതി കൺവീനർ ഇ

കോട്ടയത്ത് അറിയിച്ചു ശബരിമല വിഷയത്തിൽ ബി ജെ

മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫ

രമ യുടെ നിരാഹാരസമരം ഇന്ന് മൂന്നാംദിവസത്തേക്കും കടന്നു ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരായ മോശം പരാ മർശത്തിൽ നടൻ കൊല്ല് തുള സിക്ക് ഹൈക്കോടതി മുൻകൂർജാമൃം നിഷേധിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് കോടതി നിർദേശം നൽകി നടന്റെ പരാമർശത്തിനെതിരെ വനിതാകമ്മീഷൻ സ്വമേധയാ കേസെടുക്കു കയായിരുന്നു

ജെ

ജെ

ദേശീയ അധ്യ ക്ഷൻ അമിത്ഷാ ബി ജെ

ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖൃ മന്ത്രിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും പന്ത്രണ്ടായി രത്തോളം പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിക്കും

പൊതുതിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഇടക്കാല ബജറ്റായി രിക്കും ധനമന്ത്രി അരുൺജെയ്റ്റ്ലി അവതരിപ്പിക്കുക

പിണറായി വിജയൻ ഉൾപ്പടെ മൂന്ന് പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധി പ്രോഭ്യം ചെയ്ത് സി ബി ഐ സമർപ്പിച്ച ഹർജിയും വിധി വിവേചനപരമാണെന്ന് കാണിച്ച് നൽകിയ ഹർജികളുമാണ് കോടതി പരിഗണിക്കാനിരുന്നത് പൊതുപണിമുടക്കിൽ ഇന്നലെ തിരുവനന്തപുരം എസ്ബിഐ ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ചു ക്ലേസിൽ രണ്ട് പേർ പിടിയിലായി എൻജിഒ യൂണിയൻ തിരുവനന്ത്പുരം ജില്ലാ സെക്രട്ടറി ഹരിലാൽ തൈക്കാട് ഏരിയാസെക്രട്ടറി അശോകൻ എന്നിവരാണ് പിടിയി ലായത്

സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്

ബി ഐ ഡയറക്ടർ അലോക് വർമ്മക്കെതിരായ പരാതികൾ ചർച്ച ചെയ്യാൻ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു

സുപ്രീം കോടതി നിർദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മിറ്റി യോഗം ചേർന്നത് ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക്ക് വെടിവെപ്പ് മൂന്ന് ദിവസത്തിനിടെ ഇത് ഏഴാം തവണയാണ് പാക്കിസ്ഥാൻ വെടി നിർത്തൽ കരാർ ലംഘിക്കുന്നത് പുലർച്ചെ ഉണ്ടായ വെടിവെപ്പിൽ ആളപായമില്ല ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു ഏഷ്യൻകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു

അതേസമയം ഉദ്ഘാടന മത്സരത്തിൽ ബെഹ്റിനുമായി സമനില പാലിച്ച യു

വൈകീട്ട് കോട്ടമൈതാനിത്തു നിന്ന് കായിക താരങ്ങളുടെ ദീപശിഖ റാലി യോടെ തുടങ്ങൂന്ന പരിപാടികൾ അകത്തേത്തറ ശബരി ആശ്രമത്തിൽ ഭർണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വി

അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ എ

ബാലൻ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും സമാപന സമ്മേളനം തിങ്കളാഴ്ച ഗവർണ്ണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്യും നാലാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് ഇന്ന് കോഴിക്കോട് കട പ്പുറത്ത് തുടക്കം ഡിസി കിഴക്കെമുറി ഫൌണ്ടേഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെയും ്വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോ ടെയാണ് ഫ്റെസ്റ്റ് സംഘടിപ്പിക്കുന്നത്

ടി വാസുദേവൻനായർ ഫെസ്റ്റ് ഉദ്ഘാ ടനം ചെയ്യും കല സാഹിത്യം രാഷ്ട്രീയം സിനിമ പരിസ്ഥിതി തുടങ്ങി വിഷയങ്ങൾ കെ

വേദിയിൽ ചർച്ചചെയ്യും

റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി ഇന്ന് ചെന്നൈ യിൽ സംഘടിപ്പിക്കുന്ന ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് പ്രഭാവർമ്മ പങ്കെടുക്കും അദ്ദേഹം പുറപ്പാട് എന്ന കവിത അവതരിപ്പിക്കും വൈകിട്ട് തമിഴ്നാട് ഗവർണർ ബൻവാരി ലാൽ പുരോഹിത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാനത്ത് ഇന്ധന വിലയിൽ വർധന

അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡോയിൽ വിലയിലുണ്ടായ മാറ്റമാണ് വില വർധനയ്ക്ക് കാരണം

മലപ്പുറം ജില്ലയിലെ തിരൂർ പറവണ്ണയിൽ മൂന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വെട്ടേറ്റു

സംഘർഷ സാഹ ചര്യം കണക്കിലെടുത്ത് വൻ പൊലീസ് സംഘം പ്രദേശത്ത് കൃാമ്പ് ചെയ്യുന്നുണ്ട്

കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കൂ ടുതൽ സർവ്വീസ് ഉടൻ ആരംഭിക്കാനാകുമെന്ന് കിയാൽ മാനേജിം ഗ് ഡയറക്ടർ വി

സിംഗപൂർ മലേഷ്യ ബാ ങ്കോക്ക് കൊളംബോ എന്നിവിടങ്ങിലേക്കും അടുത്ത മാസം സർ വ്വീസ് അരംഭിക്കും